എസ് ആർ ടി സി പ്രതിസന്ധിയെ കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്

ശിശുദിനത്തോട്ന്റ്ബ്ന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന വിദ്യാലയം ഷ്ട്രിഭ്കളിലേക്ക് എന്ന പരിപാടിക്ക് ഇന്ന് തുടക്കമായി സ്കൂളു്കളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ചെറുസംഘം അദ്ധ്യാപകരോടൊന്നിച്ച് സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസ്റ്റിക്കുന്ന സാഹിത്യരംഗത്തെ പ്രതിഭുകളെ സന്ദർശിച്ച് ആദരവർപ്പിക്കുന്ന പദ്ധതിയാണിത്